രാഹുൽഗാന്ധിക്കെ തിരായ കോടതിയലക്ഷ്യ ഹർജിയിലും വിധി ഇന്ന് ചുമട്ടുതൊഴിലാളികളുടെ ചുമടിന്റെ ഭാരം കുറയ്ക്കാൻ നിയമഭേ ദഗതി കൊണ്ടുവരാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു മൂല്യവർധിത ഉൽപന്നങ്ങളിൽ അധിഷ്ഠിതമായ ഗവേഷണങ്ങളി ലൂടെ സുഗന്ധവിള കർഷകർക്ക് മികച്ച വരുമാനം നേടാനാകുമെന്ന് കേന്ദ്രസഹമന്ത്രി സഞ്ജയ് ധോത്രെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ഇന്ന് രാജ്യം ശിശുദിനമായി ആഘോഷിക്കുന്നു അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കട്ടപ്പനയിൽ നിർവ ഹിക്കും ഇന്ത്യ ബംഗ്ലാദേശ് ഒന്നാംക്രിക്കറ്റ് ടെസ്റ്റിന് ഇൻഡോറിൽ ഇന്ന് തുട ക്കം ശബരിമല റഫാൽ കേസുകളിലെ പുനപരിശോധനാ ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധിപറയും റഫാൽ കേസിൽ സുപ്രീംകോടതി വിധിയെത്തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പരാമർശം നട ത്തിയതിന്റെ പേരിൽ കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിക്കെതിരെ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലും ഇന്ന് വിധിയുണ്ടാകും

ജസ്റ്റിസുമാരായ ആർ

നരിമാൻ എ

ഖൻവിൽക്കർ ഡി

ചന്ദ്രചൂഡ് ഇന്ദു മൽഹോത്ര എന്നിവരാണ് ബെഞ്ചിലെ മറ്റ് അംഗങ്ങൾ

തുറന്ന കോടതി യിൽ വാദംകേട്ടശേഷം കഴിഞ്ഞ ഫെബ്രുവരി ആറിനാണ് വിധിപറയാ നായി മാറ്റിയത് റഫാൽ യുദ്ധവിമാന ഇടപാടിൽ മോദി ഗവൺമെന്റിന് ക്സീൻചിറ്റ് നൽകിയ വിധി പുനപരിശോധിക്കണമെന്ന ഹർജികളിലും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് രാവിലെ വിധിപറയും

ഈ ഹർജി തള്ളിയതിനെത്തുടർന്ന് പ്രധാനമന്ത്രി നരേ ന്ദ്രമോദി മോഷണം നടത്തിയതായി സുപ്രീംകോടതി വൃക്തമാക്കിയെന്ന രാഹുലിന്റെ പരാമർശത്തിന്റെ പേരിൽ ബി

നേതാവ് മീനാക്ഷി ലേഖിയാണ് കോടതിയലക്ഷ്യ ഹർജി നൽകിയത് ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ റഫാൽ കേസിൽ വിധി പറയുന്ന എസ്

കൌൾ കെ

ജോസഫ് എന്നിവരടങ്ങിയ ബെഞ്ച് തന്നെയാണ് ഈ കേസും പരിഗണിച്ചത് ചുമട്ടുതൊഴിലാളികൾ എടുക്കുന്ന ചുമടിന്റെ ഭാരം കുറക്കാൻ കേരള ഹെഡ്ലോഡ് വർക്കേഴ്സ് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു

ഇതുസംബന്ധിച്ച കരടുബിൽ മന്ത്രിസഭ അംഗീകരിച്ചു

ജനീ വയിൽ നടന്ന അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനം അംഗീകരിച്ച ശുപാർശ കളുടെ അടിസ്ഥാനത്തിലാണ് ചുമടിന്റെ ഭാരം കുറയ്ക്കാൻ നിയമഭേദ ഗതി കൊണ്ടുവരുന്നത്

അഭിജിത്തിന്റെ സഹോദരിക്ക് ഗവൺമെന്റ് ജോലിയും കുടുംബത്തിന് വീടും നൽകും റീബിൽഡ് കേരള ഇനീഷേറ്റീവ് ഉന്നതാധികാരസമിതി അംഗീകരിച്ച വിവിധ പദ്ധതി നിർദ്ദേശങ്ങൾ ലോകബാങ്കിന്റെ വികസനനയ വായ്പയിൽനിന്ന് തുക കണ്ടെത്തി നടപ്പാക്കാനും തീരുമാനിച്ചു

കോഴിക്കോട് ദേശീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ബയോക്യാപ്സ്യൂൾ സുഗന്ധവിളകളിൽ മാത്രമല്ല രാജ്യത്തെ മൊത്തം കാർഷികമേഖലകളിൽ വിപ്ലകരമായ മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് ഈസ്റ്റ്ഹിൽ കേന്ദ്രീയ വിദ്യാലയത്തിലെ പുതിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ നടപടി ക്രമങ്ങൾ വേഗത്തിലാക്കുമെന്ന് സഞ്ജയ് ധോത്രെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു വിവിധ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് നടന്ന ക്ലീൻ ബീച്ച് മിഷൻ പരിപാടിയിൽ മുഖ്യാതിഥിയായി അദ്ദേഹം പങ്കെടുത്തു ഇന്ന് ശിശുദിനം കുഞ്ഞുങ്ങളെ ജീവന്തുല്യം സ്നേഹിച്ച പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് രാജ്യം ശിശു ദിനമായി ആഘോഷിക്കുന്നത് കുട്ടികളുടെ ക്ഷേമത്തിലും സ്വാതന്ത്ര്യ ത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധകേന്ദ്രീകരിക്കുന്നതിനാണ് ദിനാചര ണം സംസ്ഥാനത്ത് ശിശുദിനറാലികൾ സ്കൂളുകളിൽ പ്രത്യേക അസം ബ്ലികൾ ബോധവത്കരണ ക്സാസുകൾ എന്നിവ ദിനാചരണത്തിന്റെ ഭാഗ മായി സംഘടിപ്പിച്ചിട്ടുണ്ട്

സ്കൂളുക ളിൽനിന്ന് വിദ്യാർഥികളുടെ ചെറുസംഘം അധ്യാപകരോടൊന്നിച്ച് സ്കൂളിന്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ശാസ്ത്ര കലാ കാ യിക സാഹിത്യരംഗത്തെ പ്രതിഭകളെ സന്ദർശിച്ച് ആദരവർപ്പിക്കുന്ന പദ്ധ തിയാണ് വിദ്യാലയം പ്രതിഭകളിലേക്ക്

ശിശുദിനം ഭിന്നശേഷി സൌഹൃദ ദിനമായും ആചരിക്കുന്നു തിരുവ നന്തപുരം വഴുതക്കാട്ടെ കാഴ്ചപരിമിതർക്കുവേണ്ടിയുള്ള ഗവൺമെന്റ് വിദ്യാലയം തൊട്ടടുത്ത പൊതുവിദ്യാലയങ്ങളുമായി ചേർന്ന് അയൽപക്ക സുഹൃദ് വിദ്യാലയ പദ്ധതിക്ക് ഇന്ന് തുടക്കം കുറിക്കും മന്ത്രി സി രവീ ന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും

മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷനായി രിക്കും മന്ത്രി എം

മണി മുഖ്യപ്രഭാഷണം നടത്തും ഇന്ത്യ ബംഗ്ലാദേശ് ഒന്നാംക്രിക്കറ്റ് ടെസ്റ്റിന് ഇൻഡോറിൽ ഇന്ന് തുട ക്കമാകും രണ്ട് ടെസ്റ്റുകളാണ് ഇരു രാജ്യങ്ങളും കളിക്കുക ടെസ്റ്റ് ക്രിക്ക റ്റിൽ തുടർവിജയങ്ങളുടെ ആത്മവിശ്വാസവുമായാണ് നായകൻ വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിൽ ടീം ഇന്ത്യ കളിക്കാനിറങ്ങുന്നത്

താജിക്കിസ്ഥാനിൽ ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാറൌണ്ടിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും ഒരു തോൽവിയും രണ്ട് സമ നിലയുമായി കളിക്കാനിറങ്ങുന്ന ഇന്ത്യയ്ക്ക് ജയം അനിവാര്യമാണ്

പെരിയാറിനെയും കാലിക്കറ്റ് മൈസുരിനെയും നേരിടും ഇന്നലെ നടന്ന ആദ്യറൌണ്ട് സെമിയിൽ കാലിക്കറ്റ് എം ജിയെ പരാജയപ്പെടുത്തി അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കായികോൽസവത്തിന്റെ പ്രചരണാർത്ഥം ഇന്ന് വൈകുന്നേരം കണ്ണൂരിൽ വിളംബര ഘോഷയാത്ര നടക്കും ശനിയാഴ്ച മാങ്ങാട്ട് പറമ്പിലെ യൂണിവേഴ്സിറ്റി സിന്തറ്റിക്ക് ഗ്രൌണ്ടിലാണ് കായികോത്സവം ആരംഭിക്കുന്നത് പാലക്കാട് ജില്ല കായികമേളയിൽ മണ്ണാർക്കാട് ഉപ ജില്ലാ ജേതാക്കളായി പറളി ഉപജില്ല രണ്ടാം സ്ഥാനവും പാലക്കാട് ഉപജില്ല മൂന്നാം സ്ഥാനവും നേടി തൃശൂർ റവന്യൂജില്ലാ അത്ലറ്റിക് മീറ്റിൽ ഇരിങ്ങാലക്കുട ഉപജില്ല ഓവറോൾ ചാമ്പൃന്മാരായി വലപ്പാട് ഉപജില്ലക്കാണ് രണ്ടാംസ്ഥാനം ഇടുക്കി ജില്ലാ റവന്യൂ സ്കൂൾ കായികമേളയിൽ കട്ടപ്പന സബ്ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി സബ്ജില്ലാതലത്തിൽ അടിമാലി ഒന്നാമതെ ത്തി

ഇന്ന് ലോക പ്രമേഹദിനം പ്രമേഹത്തിനെതിരായ ബോധവൽക്ക രണം ലക്ഷ്യമിട്ട് ലോകമെങ്ങും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടു ണ്ട് ഇൻസുലിൻ കണ്ടുപിടിച്ച ഡോക്ടർ ഫ്രെഡറിക് ബാറ്റിങിന്റെ ജന്മ ദിനമാണ് ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത്

ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രമേഹനിർണയ ക്യാമ്പുകളടക്കം ഒരുമാസം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും

ചിത്രീകരണം സാങ്കേതിക പ്രവർത്തനങ്ങൾ വിതരണം പ്രദർശനം എന്നിവ നിർത്തിവെച്ചാണ് പ്രതിഷേധമെന്ന് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എം

മൾട്ടിപ്ലക്സ് തിയേറ്ററുകളും സമരത്തിൽ പങ്കെ ടുക്കും പന്തീരാങ്കാവ് യു

കേസിൽ വിദ്യാർഥികളുടെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും ജില്ലാ സെഷൻസ് കോടതി ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട താഹ ഫസലിനെ കോഴിക്കോട് മെഡിക്കൽ കോളെജിൽ വൈദ്യപരിശോധനക്ക് വിധേയനാക്കി

കിടപ്പുരോഗികളുടെ മസ്റ്ററിങ് അക്ഷയകേന്ദ്രം പ്രതിനിധികൾ അടുത്ത മാസം ഒന്നുമുതൽ അഞ്ചുവരെ വീട്ടിൽവന്ന് നടത്തും

മസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ അടുത്ത ഗഡുമു തൽ പെൻഷൻ ലഭിക്കുകയുള്ളൂവെന്നും ധനവകുപ്പ് തിരുവനന്തപുരത്ത് അറിയിച്ചു സാമ്പിൾ ഡാറ്റ നൽകുന്നതിന് പകരം സ്വകാര്യ കമ്പനിയായ ഊരാ ളുങ്കലിന് കേരള പോലീസിന്റെ രഹസ്യ ഫയലുകളിലേക്ക് നേരിട്ട് ആക്സസ് നൽകിയ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് യു

കൺവീനർ ബെന്നി ബെഹനാൻ എം

ജോസഫ് ഫ്ളാറ്റ് ഉടമ സാനി ഫ്രാൻസിസ് എന്നിവ രുടെ ജാമ്യാപേക്ഷ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളി നിയമവി രുദ്ധമായി ഫ്ളാറ്റുകൾ നിർമിക്കാൻ പ്രതികൾ ഒത്താശചെയ്തു എന്നാണ് കേസ്

എം വയനാട് മുൻ ജില്ലാ സെക്രട്ടറി മന്ദലത്ത് വേലായുധൻ നിര്യാതനായി

സംസ്കാരം വൈകീട്ട് വീട്ടുവളപ്പിൽ നടക്കും

കാർത്തിയുടെ സഹോദരൻ മുരുകേശനും മറ്റ് ബന്ധുക്കളും കളക്ടറെ സന്ദർശിച്ച് അപേക്ഷ നൽകിയപ്പോഴാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അഞ്ച് വയസ്സിനു താഴെ പ്രായംവരുന്ന കുട്ടികളിൽ കണ്ടുവരുന്ന വയറിളക്ക രോഗങ്ങൾക്ക് പ്രധാന കാരണങ്ങളിലൊന്നായ റോട്ടാവൈറസ് അണുബാധയെ ചെറുക്കാൻ ഇനിമുതൽ ഗവൺമെൻറ് ആശുപത്രികളിൽ റോട്ടാ വൈറസ് വാക്സിൻ ലഭ്യമാക്കും കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ഗവൺമെൻറ് ആശുപത്രികളിലും സൌജന്യമായി ഈ വാക്സിൻ നൽകുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു

സ്കുൾ പ്രധാനാധ്യാപകർക്കും പ്രിൻസിപ്പൽമാർക്കും പി

ഭാരവാഹികൾക്കുമായി സംഘടിപ്പിച്ച ഏകദിന ശിൽപശാലയിലാണ് ഇത് സംബന്ധിച്ച് നിർദേശം നൽകിയത്

ജി